ബി എസ്

പാലക്കാട് ജില്ലയിൽ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിച്ചു

രുമ എട്ട് സൈനിക ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ കണ്ണൂരിൽ കോവിഡ് ബാധിച്ചു വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ

ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ പാരീസ് ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നും പ്രവാസികൾ വരുന്നുണ്ട്

അബുദാബിയിൽ നിന്ന് ആദ്യമായി ഇത്തിഹാദ് വിമാനവും കണ്ണൂരിലിറങ്ങി ദേദ വയനാട് ജില്ലയിലെ പെട്രോൾ ബങ്കുകളുടെ പ്രവർത്തന സമയം ലോക്ഡൌണിന് മുമ്പുണ്ടായിരുന്ന നിലയിലേയ്ക്ക് പുനഃക്രമീകരിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം ഇവയുടെ പ്രവർത്തനം

ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങളിൽ മലയാള പരിഭാഷയും കേൾക്കാം

വരും ദിവസങ്ങളിലും സ്പെഷ്യൽ ഡ്രൈവ് തുടരും

ഇവരിൽ മൂന്നുപേരെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേയ്ക്കും ശേഷിച്ചവരെ ഹോം ക്വാറന്റൈൻ നിർദ്ദേശിച്ച് വീടുകളിലേക്കും അയച്ചു

ബി എസ്

ബി എസ് ഇ പ്രഖ്യാപിച്ച വിലയിരുത്തൽ സംവിധാനത്തിലൂടെ പ്രസിദ്ധീകരിക്കുന്ന ഫലം അന്തിമമായിരിക്കുമെന്ന് മന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു

എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്

ദരര ഹൈക്കോടതിയിൽ രാജ്യ ചരിത്രത്തിൽ ആദ്യമായി നിയമ ബിരുദധാരികൾ ഓൺലൈനിൽ അഭിഭാഷകരായി ഇന്ന് എൻറോൾ കോവിഡ് സാഹചര്യത്തിലാണ് ചെയ്യും ചടങ്ങ് ഓൺലൈനാക്കിയത്

കേരള ബാർ കൌൺസിൽ ഓഫീസിൽ ചെയർമാൻ കെ പി ജയചന്ദ്രൻ ബിരുദധാരികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും

എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരുടെ താൽക്കാലിക നിയമനത്തിന് ഹൈക്കോടതി മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു

എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കണം നിയമനം സംവരണവും സീനിയോറിറ്റിയും പാലിച്ചായിരിക്കണം നിയമനമെന്ന് കോടതി ആവശ്യപ്പെട്ടു നിയമനം ലഭിക്കുന്നവർക്ക് മുൻഗണനയോ അവകാശമോ പാടില്ലെന്നും നിയമനം തൽക്കാലം സ്വീകരിക്കാത്തവർക്ക് സ്ഥിര നിയമനത്തിന് അവകാശം നഷ്ടമാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു

രുമ കോൺഗ്രസ് നേതൃത്വം നൽകിയ യു

എ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രാജീവ് ഗാന്ധി ഫൌണ്ടേഷനിലേയ്ക്ക് പണം വഴി തിരിച്ച് വിട്ടതായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ

ഇക്കാര്യത്തിൽ കോൺഗ്രസ് ജനങ്ങളോട് ക്ഷമാപണം നടത്തണമെന്ന് നദ്ദ ട്വിറ്ററിൽ ആവശ്യപ്പെട്ടു രേര അടിയന്തരാവസ്ഥയുടെ വാർഷികത്തോടനുബന്ധിച്ച് വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് സംഘടിപ്പിച്ച പരിപാടി മിസോറാം ഗവർണർ പി

അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം പാഠ്യവിഷയമാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു

ജെ പി ദേശീയ കൌൺസിൽ അംഗം കെ പി ശ്രീശൻ ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഗംഗാധരൻ എം കെ പ്രേംനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു

ജെ പി സംസ്ഥാന ഘടകത്തിന്റെ കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ഇതിന് തുടർച്ചയായി എൻ ഡി എ യോഗം നാളെ ഉച്ചയ്ക്കും കൊച്ചിയിൽ ചേരും രേര മലയാളികളായ പ്രവാസികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്രസഹമന്ത്രി വി മുരളീധരന്റേതെന്ന് ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കോഴിക്കോട്ട് പറഞ്ഞു കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ബംഗാൾ മോഡൽ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇക്കാര്യത്തിൽ കേരളത്തിലെ സി

എമ്മും സി

ഐയും നിലപാട് വ്യക്തമാക്കണമെന്ന് ക്വഷ്ണദാസ് ആവശ്യപ്പെട്ടു

കൈത്തറി സംഘങ്ങളുടെയും ഹാൻടെക്സ് ഹാൻവീവ് എന്നിവയുടെയും ഉല്പന്നങ്ങൾക്കാണ് റിബേറ്റ്

ജൂലൈ ഒന്നിന് മന്ത്രി ഇ പി ജയരാജൻ റിബേറ്റ് വിൽപ്പന ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും ലോക്ഡൌൺമൂലം വിഷുവിനും റംസാനും ഇത്തവണ റിബേറ്റ് മേളകൾ ഉണ്ടായിരുന്നില്ല രുദ തലയിൽ ചക്ക വീണ് പരിക്കേറ്റ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് സ്വദേശി മരിച്ചു

ചികിത്സയിൽ ഇയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിലും നാലു ദിവസത്തിന് ശേഷം ഫലം നെഗറ്റീവ് ആയി മാറിയിരുന്നു

കോവിഡ് മാറിയെങ്കിലും വ്യക്കരോഗമുൾപ്പെടെ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു രുര ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ മൊബൈൽ ഫ്യുവൽ സ്റ്റേഷൻ കോഴിക്കോട്ട് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തു ഫോൺ ചെയ്താൽ വാഹനത്തിനരികെയും വ്യവസായ ആവശ്യങ്ങൾക്കും ഡീസൽ എത്തിക്കുന്ന സംവിധാനമാണിത് മൊബൈൽ ആപ്പിക്കേഷൻ വഴി ഇന്ധനം ബുക്ക് ചെയ്യാനും പണമടയ്ക്കാനും സാധിക്കും